ലക്ഷം കവിഞ്ഞു

സി

ഭൂമിപൂജ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ പ്രതിരോധത്തിൽ അലംഭാവം അരുതെന്ന് മുഖ്യമന്ത്രി

വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമഗ്രമായി പരിശോധിച്ചശേഷമാണ് ഇന്നലെ രാത്രിയോടെ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഡോക്ടർ വി

രാജ്യത്തെ ആരോഗൃമുള്ള പ്രായപൂർത്തിയായവരിൽ വാക്സിന്റെ രണ്ടും മൂന്നും ഘട്ട ക്സിനിക്കൽ ട്രയലുകൾ നടത്താൻ അനുമതി നൽകാൻ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ വിദഗ്ധ പാനൽ വെള്ളിയാഴ്ച ശുപാർശ ചെയ്തിരുന്നു പരിശോധന തുടങ്ങുന്നതിന് മുൻപ് വിശദമായ ഡാറ്റ സമർപ്പിക്കണമെന്നും നിർദേശം നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ടും മൂന്നും ഘട്ട പരീക്ഷണങ്ങൾ ബ്രിട്ടണിലും മൂന്നാം ഘട്ട പരീക്ഷണം ബ്രസീലിലും ഒന്നും രണ്ടും ഘട്ട പരീക്ഷണങ്ങൾ ദക്ഷിണാഫ്രിക്കയിലും നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ടെയിൻമെന്റ് സോണുകളിൽ ഇവ തുറക്കാൻ പാടില്ല

ജിമ്മുകളിലും യോഗ പരിശീലന കേന്ദ്രങ്ങളിലും കോവിഡ് ജാഗ്രതാ മുൻകരുതലുകൾ കർശനമായി പാലിക്കണം ആളുകൾ തമ്മിൽ ആറടി സാമൂഹിക അകലം പാലിക്കണം മാസ്കുകളും സാനിറ്റൈസറും നിർബന്ധമായും ഉപയോഗിക്കണം എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദേശങ്ങളിൽ വ്യക്തമാക്കുന്നു

നിലവിൽ അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്നും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് നിരീക്ഷണത്തിൽ പ്രവേശിച്ചതെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വൃക്തമാക്കി ഇന്നലെയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

രോഗികൾക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് ഇത് സഹായിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി വാർഡുകളിൽ മൊബൈൽ ഫോൺ അന്ദ്യൂവദനീയമാണെങ്കിലും ചില ആശുപത്രി അധികൃതർ അനുവദിക്കുന്നില്ലെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ നട്പടി

രാജ്യമെമ്പാടുമുള്ള വാക്സിൻ വിതരണ ശൃംഖലയെ ശാക്തീകരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യയാണ് ഇ വിൻ

രാം രാജ ക്ഷേത്രത്തിന്റെ മണ്ണും ബേത്വ നദിയിലെ വെള്ളവും ബുന്ദേൽഖണ്ഡിലെ അയോധ്യ എന്നറിയപ്പെടുന്ന ഓർച്ചയിൽ നിന്ന് അയോധ്യയിലേക്ക് അയച്ചിട്ടുണ്ട്

സംസ്കൃത ഭാഷ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇന്ത്യയെ കാലങ്ങളായി അറിവിന്റെ കലവറ ആക്കിമാറ്റിയ ഭാഷയാണ് സംസ്കൃതം എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു സംസ്കൃതം ജനകീയമാക്കുന്നതിൽ കൂട്ടായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി രക്ഷാബന്ധൻ ദിന ആശംസകൾ നേർന്നു

ട്രെയിൻഡ് നഴ്സസ്സി ആസോസിയേഷൻ ഓഫ് ഇന്ത്യ മിലിറ്ററി നഴ്സിംഗ് സർവീസ്സ് പ്ലസിഡന്റ്സ് എസ്റ്റേറ്റ് ക്ലിനിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്ദ്സിംഗ് പ്രതിനിധികൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് രാഖിയും ആൾൾൾക്ളും കൈമാറി

ഇന്ന് രണ്ട് മരണം സ്ഥിരീകരിച്ചു

ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് കാറന്റൈയിൻ ലംഘിക്കുന്നവർക്കും സമ്പർക്ക വിലക്ക് ലംഘിക്കുന്നവർക്കും എതിരെ കർശന നടപടി എടുക്കും

ശാരീരിക ആകലം നിർബന്ധമാക്കണം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല അലംഭാവം കാട്ടുന്നവർക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

കേന്ദ്രസർക്കാരിന്റെ കോവിഡ് മാർഗനിർദേശങ്ങളിൽ രാഷ്ട്രീയ സമരങ്ങൾ വിലക്കിയിട്ടുള്ള സാഹചരൃത്തിലാണ് ഹൈക്കോടതി നടപടി കേന്ദ്രസർക്കാരിന്റെ കോവിഡ് മാനദണ്ഡങ്ങളിൽ ഇപ്പോൾ ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി വൃക്തമാക്കി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏപ്ലൂ വോട്ടർമാരും നിർബന്ധമായും മാസ്ക് ധരിക്ക്ണുഉമന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തമാക്കി

എൽ മത്സരങ്ങൾ യു

ഇയിൽ നടത്താൻ ബി സി

ഐ യ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി

ഇന്നലെ ചേർന്ന ഐ

എൽ ഭരണസമിതി യോഗത്തിനു ശേഷമാണ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത്

എ ഇ യിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്

ഷാർജ ദുബായ് അബുദാബി എന്നീ മൂന്നു വേദികളിലായിട്ടായിരിക്കും മത്സരങ്ങൾ

എ ഇ യിൽ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട്